വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് സെറാവീക്ക് ഗ്ലോബൽ എനർജി ആൻഡ് എൻവയേൺമെന്റ് ലീഡർഷിപ് അവാർഡ് ഏറ്റുവാങ്ങും

ആഗോള ഊർജ പരിസ്ഥിതി മേഖലകളുടെ ഭാവിക്ക് നേതൃത്വപരമായ പ്രതിബദ്ധത പുലർത്തുന്നതിന്റെ അംഗീകാരമായാണ് അവാർഡ് രുഭ പ്രധാനമന്ത്രി സ്വീഡൻ പ്രധാനമന്ത്രി സ്റ്റെയ്ഫാൻ ലോവിയനുമായി ഇന്ന് വിർച്വൽ ഉച്ചകോടി നടത്തും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും സമഗ്രമായ ചർച്ച നടത്തും കോവിഡാനന്തര കാല സഹകരണം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ മേഖലാ ആഗോള തലങ്ങളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച വീക്ഷണങ്ങൾ ഇരുവരും പങ്കുവെക്കും

രുര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം അസം പുതുച്ചേരി തമിഴ്നാട് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിരീക്ഷകരുമായി ചർച്ച നടത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മുഖ്യ തെരഞ്ഞെടുപ്പു കമ്മീഷണർ സുനിൽ അറോറ നിരീക്ഷകരെ ധരിപ്പിച്ചു സുരക്ഷാ സേനകളുടെ വിന്യാസവും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിശ്ചയിക്കാനുമുള്ള ചുമതലയും കൂടി പ്രത്യേക നിരീക്ഷകരുടെ ചുമതലയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേക നിരീക്ഷകർ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ മറ്റന്നാൾ കേരളത്തിലെത്തും ആദ്യ ദിവസം തൃശൂർ ജില്ല സന്ദർശിക്കുന്ന അദ്ദേഹം തിങ്കളാഴ്ച എറണാകുളത്ത് ജില്ലാ ഇലക്ടറൽ ഓഫീസർമാരുടെയും ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും അടുത്ത ദിവസം കോട്ടയം എറണാകുളം ജില്ലകളിലെ ചിലയിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും രുഭ നിയമസഭാ തെരഞ്ഞെടുപ്പു നടക്കുന്ന അഞ്ചു സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ട സ്ഥാനാർഥിപ്പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുന്നതിന് ബി ജെ

കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ന്യൂഡെൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പാർട്ടി അധ്യക്ഷൻ ജെ

നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിങ് തുടങ്ങിയവർ പങ്കെടുത്തു അസം പശ്ചിമ ബംഗാൾ നിയമസഭകളിലേക്ക് ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർഥികളുടെ പേരുകൾ ചർച്ച ചെയ്തു പശ്ചിമ ബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർഥികളുടെ പേരുകൾ അംഗീകരിക്കുന്നതിന് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ ചേരും ദേദ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനങ്ങളിലും സദസ്സുകളിലും പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ നിർദേശിച്ചു ചീഫ് സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച കത്ത് അദ്ദേഹം കൈമാറി സമ്മേളനങ്ങളിലും പ്രചാരണ യോഗങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങളും സാമൂഹ്യ അകലവും കർശനമായി പാലിക്കുകയും വേണം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പൊതുജനങ്ങളും മാർഗനിർദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ടീക്കാറാം മീണ ഓർമിപ്പിച്ചു രുഭ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികളിലേയും പാർട്ടികളിലേയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയായ സിപിഐഎം ന്റെ സംസ്ഥാന കമ്മറ്റി യോഗം ഇന്നാണ് തുടർച്ചയായി രണ്ടോ അതിലധികമോ തവണ മത്സരിച്ച് ജയിച്ചവരെ മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് നിർദേശത്തിൽ സംസ്ഥാന കമ്മറ്റി ഇന്ന് തീരുമാനമെടുത്തേക്കും ഇങ്ങനെവന്നാൽ ഏതാനും സിറ്റിങ്ങ് എംഎൽഎമാർക്ക് മത്സരിക്കാൻ അവസരം നഷ്ടമാകും

ഇന്നും നാളെയുമായി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഉണ്ടായ സീറ്റ് വിഭജന തർക്കം ഇനിയും പരിഹരിക്കാനായിട്ടില്ല മുസ്ലീം ലീഗുമായി ഇന്ന് സീറ്റ് ധാരണ ആയേക്കുമെന്നാണ് റിപ്പോർട്ട് എൻഡിഎ യിൽ ബിജെപി ബിഡിജെഎസ് ചർച്ചയിലും അന്തിമ തീരുമാനം ഇനിയും പുറത്തുവന്നിട്ടില്ല കേരളാ കോൺഗ്രസ് പി

തോമസ് വിഭാഗവുമായും ചർച്ചകൾ നടക്കുകയാണ് ബിജെപി വിജയയാത്രയുടെ തിരുവല്ലയിലെ സ്വീകരണ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മെട്രോമാൻ ഇ ശ്രീധരനെ എൻഡിഎ യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സൂചിപ്പിച്ചെങ്കിലും അങ്ങനെയൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു ദേദ കേരളാ കോൺഗ്രസ് എം ന്റെ മുന്നണി മാറ്റം കോട്ടയം ജില്ലയിൽ എൽഡിഎഫിന്റേയും യുഡിഎഫിന്റേയും തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങളേയും ഫലപ്രവചനങ്ങളേയും മാറ്റിമറിക്കുന്നു

വയനാട് ജില്ലയിലും തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കുന്നവർക്ക് ഓഫീസ് മേധാവിയുടെ ശുപാർശ കത്തുമായി വാക്സിൻ എടുക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

ദേദ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ആർഎസ്പി ലെനിനിസ്റ്റ് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുമെന്ന് കോവൂർ കുഞ്ഞിമോൻ എംഎൽഎ അറിയിച്ചു ഒരാഴ്ച്ചക്കകം പാർട്ടി രൂപീകരണമുണ്ടാകുമെന്നും ആർഎസ്പി ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് എന്ന പഴയ പാർട്ടി ഇല്ലാതായെന്നും കോവൂർ കുഞ്ഞിമോൻ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രുഭ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം ആരംഭിക്കും രാവിലെ പത്തനാപുരം ടൌണിൽ യാത്രക്ക് ആദ്യ സ്വീകരണം നൽകും

വൈകീട്ട് കൊല്ലം പീരങ്കി മൈതാനിയിൽ കേന്ദ്ര സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏഴിടങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഒന്നാം ഇന്നിങ്ങ്സ് ബാറ്റിങ്ങ് തുടങ്ങിയ ഇന്ത്യക്ക് ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റാണ് നഷ്ടമായത്

രുദ തിരൂർ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടയ്ക്കൽ ജോലികൾ ആരംഭിച്ചു

ദേദ കേരളാ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് ഇന്ന് സമാപനം വൈകീട്ട് സമാപന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും

ദേദ വയനാട് ജില്ലയിൽ വരൾച്ച നേരിടുന്നതിന് തോടുകളിലും അരുവികളിലും പരമാവധി താൽക്കാലിക തടയണകൾ നിർമ്മിക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കർഷകരുടേയും പാടശേഖര സമിതിയുടെ സഹായത്തോടെയും ഇവയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദേശം നൽകി

ദ്ദേ ഗവേഷണഫലങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് പ്രധാനപ്പെട്ടതാണെന്ന് കേരള കേന്ദ്ര സർവ്വകലാശാല വൈസ് ചാൻസലർ പ്രൊഫ

ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ കാസർകോട് പ്രസ് ക്സബ്ബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സെമിനാർ കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ ഭാഷാ പണ്ഡിതൻ പ്രൊഫ വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു ദേദ കവിയും ഗാനരചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുലിനെ കോഴിക്കോട്ടെ സൌഹൃദ കൂട്ടായ്മ ആദരിച്ചു മിസോറാം ഗവർണർ പി

ഷാഹുലിന്റെ നാടക ഗാനസ്മരണകൾ മഞ്ചലേറ്റിയ ഗീതങ്ങൾ എന്ന പുസ്തകം ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു